പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് ഡെവലപ്മെന്റ് പാർട്ണേഴ്സ് കോൺക്ലേവ് ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് കർണ്ണാടകയിൽ കുമാരസ്വാമി മന്ത്രിസഭ വിശ്വാസവോട്ട് തേടുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതികൾ പൊലീസ് പിടിയിൽ എടക്കര നാടുകാണി പരപ്പനങ്ങാടി ചുരം പാത ഒരു വർഷം കൊണ്ട് പൂർത്തി യാക്കുമെന്ന് മന്ത്രി ജി സുധാകരൻ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിന് കന്നി കിരീടം

സാങ്കേതിക തകരാറുമൂലമാണ് വിക്ഷേപണം മാറ്റിയതെന്ന് ഐ എസ് ആർ ഒ ടിറ്ററിൽ അറിയിച്ചു

പുതിയ വിക്ഷേപണ തിയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്നും ഐ എസ് ആർ ഒ വ്യക്തമാക്കി

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിക്കാൻ ശ്രീഹ രിക്കോട്ടയിൽ എത്തിയിരുന്നു

പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് ദേശീയ രാജ്യാന്തരതല ഏജൻസികളുടെ വായ്പകളും സാമ്പത്തികസാങ്കേതിക സഹായങ്ങളും ലഭ്യമാക്കാൻ ലക്ഷ്യമാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള നിർമ്മാണ കർമ പദ്ധതി വിശദീകരിച്ച് സംസാരിക്കും കേരള പുനർനിർമ്മാണത്തിന്റെ ഭാഗമായ അടിസ്ഥാന ആവശ്യങ്ങൾ കോൺക്ലേവിൽ അവതരിപ്പിക്കുകയും അതിനാവശ്യ മായ തുക വിവിധ വികസന പങ്കാളികളിൽ നിന്ന് നേടിയെടുക്കുകയുമാണ് ഗവൺമെന്റ് ലക്ഷ്യം ജലവിഭവം തദ്ദേശസ്വയംഭരണം കൃഷി വനം വന്യജീവി പൊതുമരാമത്ത് ഗതാഗതം മത്സ്യബന്ധനം എന്നീ മേഖലകളിൽ കോൺക്ലേവിൽ ചർച്ച നടക്കും ലോക ബാങ്ക് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് കെ

ഡബ്ലിയു ബാങ്കൻഗ്രൂപ്പെ ജപ്പാൻ ഇന്റർനാഷണൽ കോ ഓപറേഷൻ ഏജൻസി ഫ്രഞ്ച് ഡവ ലപ്മെന്റ് ഏജൻസി യു

പി തുടങ്ങിയ ദേശീയ അന്തർദേശീയ വിക സന പങ്കാളികൾ കോൺക്ലേവിൽ പങ്കെടുക്കും കർണ്ണാടകയിൽ കുമാരസ്വാമി മന്ത്രിസഭ വിശ്വാസവോട്ട് തേടുന്ന കാര്യ ത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും രാവിലെ ചേരുന്ന കാര്യോപദേശക സമിതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും ഇന്നുതന്നെ വിശ്വാസവോട്ട് തേടണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി

എന്നാൽ ഇക്കാര്യത്തിൽ സ്പീക്കറുടെ തീരുമാനം നിർണ്ണായകമാകും അതിനിടെ തകർച്ച യുടെ വക്കിൽ നിൽക്കുന്ന കുമാരസ്വാമി മന്ത്രിസഭയെ രക്ഷിക്കാൻ ഭാവി പരിപാ ടികൾ സംബന്ധിച്ച് കോൺഗ്രസും ജെ ഡി എസും തിരക്കിട്ട കൂടിയാലോചന കൾ തുടരുകയാണ് രാജിവെച്ച എം എൽ എമാരെ തിരികെ കൊണ്ടുവരാനാണ് ഇരുപാർട്ടികളുടെയും നേതാക്കൾ ശ്രമിക്കുന്നത്

ശിവരഞ്ജിത്ത് യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് പ്രസി ഡന്റും നസീം സെക്രട്ടറിയുമായിരുന്നു ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം ആറായി ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വധശ്രമകേസിൽ എട്ടുപേർക്കെ തിരെയാണ് പൊലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നത് അതിനിടെ ഒന്നാം പ്രതി ശിവരഞ്ജിത്തിന്റെ വീട് റെയ്ഡ് ചെയ്ത പൊലീസ് കേരള സർവക ലാശാലയുടെ ഉപയോഗിക്കാത്ത ഉത്തരക്കടലാസുകളും കായികാധ്യാപകന്റെ സീലും കണ്ടെടുത്തു ഇത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ പ്രതി യുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തു ക്രിമിനലുകൾ എങ്ങനെ എസ് എഫ് ഐ ഭാരവാഹി കളായന്ന് അന്വേഷിക്കണമെന്ന് മന്ത്രി ജി

ഇങ്ങനെയുള്ളവർ പൊലീസുകാരായാൽ എന്തായിരിക്കും അവസ്ഥയെന്നും കയ്യിൽ കത്തിയും കഠാരയും കൊണ്ട് എങ്ങനെ സംഘടന പ്രവർത്തനം നടത്തുമെന്നും അദ്ദേഹം ചോദിച്ചു കയ്യിൽ ഒരു ബ്ലേഡ് പോലും കരുതാതെയാണ് തങ്ങൾ വിദ്യാർഥി രാഷ്ട്രീയം നടത്തിയതെന്നും ജി സുധാകരൻ മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഇവർ പോലീസ് സർവീസിലെത്താൻ പാടില്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു എടക്കര നാടുകാണി പരപ്പനങ്ങാടി ചുരം പാത ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് മന്ത്രി ജി

ചുരത്തിൽ മണ്ണുനിരങ്ങി നീങ്ങൽ പ്രതിഭാസമുണ്ടെന്നും ഇത് പരിഹരിക്കാനായി ജിയോളാജിക്കൽ വകുപ്പിന്റെ സഹായം തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു

പാല് മുട്ട പച്ചക്കറി ഉല്പ്പാദനത്തിൽ സ്വയം പര്യാപ്തതയാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് പറഞ്ഞു കോഴിക്കോട് മുക്കത്ത് ക്ഷീര നഗരം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

പി ജി വേണ്ടെന്നുവയ്ക്കാൻ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം തീരുമാനിച്ചു

ഡി എം എസ് കോഴ്സുകളിൽ എം ബി ബി എസ് പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താനാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം ഇതി നായി ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ പുതുക്കിയ കരട് ബില്ലിൽ ഭേദഗതി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇത് അംഗീകാരത്തിനായി ഉടൻ മന്ത്രിസഭയിൽ അവതരിപ്പി ക്കുമെന്ന് മന്ത്രാലയ കേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു ബി എൽ സന്തോഷിനെ ബി

ജനറൽ സെക്രട്ടറിയായി പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ നിയമിച്ചു ബി ജെ പി ജോയന്റ് ജനറൽ സെക്രട്ടറിയായി രുന്നു അദ്ദേഹം

നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ സൂപ്പർ ഓവറിൽ ന്യൂസിലാന്റിനെ തോൽപി ച്ചാണ് ഇംഗ്ലണ്ട് പുതിയ ലോക ചാമ്പ്യന്മാരായത് സൂപ്പർ ഓവർ സമനിലയിലായ തിനാൽ ചട്ടമനുസരിച്ച് മത്സരത്തിൽ നേടിയ ബൌണ്ടറികളുടെ ആനുകൂല്യത്തി ലാണ് ഇംഗ്ലണ്ടിന്റെ കിരീടനേട്ടം

ഇതോ ടെയാണ് ബൌണ്ടറികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇംഗ്ലണ്ടിന്റെ വിജ യം ലോകകപ്പ് ക്രിക്കറ്റിൽ ഇതാദ്യമായാണ് ഇംഗ്ലണ്ട് കിരീടം സ്വന്തമാക്കുന്നത്

വിംബിൾഡൺ ടെന്നീസ് പുരുഷവിഭാഗം സിംഗിൾസ് കിരീടം സെർബി യൻ താരം നൊവാക്ക് ജോക്കോവിച്ചിന് ലണ്ടനിൽ അഞ്ച് സെറ്റ് വരെ നീണ്ട പോരാട്ടത്തിൽ റോജർഫെഡററെ തോൽപിച്ചാണ് ലോക ഒന്നാം നമ്പർ താരം നോവാക്ക് കിരീടം സ്വന്തമാക്കിയത് ജോക്കോവിച്ചിന്റെ അഞ്ചാം കിരീടമാണിത്

മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു കൊല്ലം ്രബീച്ചിൽ ആരംഭിച്ച മറൈൻ അക്വേറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുക യായിരുന്നു അവർ

ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പട്ടാമ്പിയിൽ ആരംഭിച്ച കോച്ചിംഗ് സെൻറർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മതന്യൂനപക്ഷങ്ങളെ കൂടുതലായി സംരക്ഷിച്ച രാജ്യമാണ് ഇന്ത്യ എന്നാൽ ഇന്ന് സ്ഥിതിഗതികളിൽ മാറ്റം സംഭവിച്ചുകൊണ്ടി രിക്കുകയാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു

യാഥാസ്ഥിക ആശയക്കാ രാണ് സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്നതെന്നും അനാചാരങ്ങളെ എതിർക്കുന്നവരെയും തെറ്റ് ചൂണ്ടി ക്കാണിക്കുന്നവരെയും എതിരാളികളായി ചിത്രീകരിക്കു കയാണെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ജന്റർ സൌഹൃദ ്കരട് നയരേഖ പ്രകാശനം ചെയ്യുക യായിരുന്നു മന്ത്രി

സംസ്ഥാനത്തെ വൈദ്യുതി നില വിലയിരുത്താൻ കെ

മഴക്കുറവും സെൻട്രൽ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി കുറവും കണക്കിലെടുത്ത് ലോഡ് ഷെഡ്സിംഗ് അടക്കം നിയന്ത്രണം കൊണ്ടുവരാൻ യോഗം ഗവൺമെന്റിനോട് ശിപാർശ ചെയ്തേക്കും

ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ല യിൽ വ്യാഴാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു

ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു

ആന്തൂർ സംഭവത്തിൽ ഉന്നത നേതാക്കൾ കുടുങ്ങു മെന്ന ഭയത്തിലാണ് സി

എം വ്യാജ പ്രചരണ ത്തിന് ഇറങ്ങിയിരിക്കുന്നതെന്ന് കെ

പ്രവാസി വ്യവസായിയുടെ മരണത്തിന് കാരണക്കാരായവരെ സംരക്ഷിക്കുവാൻ നടത്തൂന്ന നീക്കത്തിനെതിരെ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡണ്ട് സതീശൻ പാച്ചേനി ആന്തൂർ നഗരസഭയിൽ നടത്തിയ പദയാത്രിയുടെ സമാപനയോഗം ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു അദ്ദേഹം ഈ വിഷയത്തിൽ കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും നിയമത്തിന്റെ ഏതറ്റംവരെയും പോകാൻ തയ്യാറാണെന്നും മുല്ലപ്പള്ളി പറഞ്ഞു

ക്യാമ്പസുകളിൽ രാഷ്ട്രീയ അതിപ്രസരമാ ണെന്നും അധികാരം പിടിക്കാൻ എന്തുമാർഗ്ഗവും സ്വീകരിക്കാൻ വിദ്യാർത്ഥി സംഘ ടനകൾ ഇന്ന് തയ്യാറാകുന്നുവെന്നും കൌൺസിൽ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപാകൃം ആരോപിച്ചു പൊലീസിന്റെ മൂന്നാംമുറ കേരളത്തിന് മാന ക്കേടാണെന്നും ഇത് നീതീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി

യു ഡി എഫ് ഇന്ന് പഞ്ചായത്ത് തലത്തിൽ ധർണ നടത്തും വൈദ്യു തിനിരക്ക് വർദ്ധനയ്ക്കും കാരുണ്യ ധനസഹായം അട്ടിമറിച്ചതിനും പ്രളയദുരിതാ ശ്വാസ സഹായം നൽകുന്നതിലെ ഗുരുതരവീഴ്ചയിലും പ്രതിഷേധിച്ചാണ് ധർണ

വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗവൺമെന്റ പരിപാടികളിൽ നിന്നും തന്നെ മനപൂർവ്വം തഴയുകയാണെന്ന് കെ മുരളീധരൻ എം പി കോഴിക്കോട്ട് പറഞ്ഞു ഇതിൽ ആക്ഷേപ മില്ലെന്നും എം പി ഫണ്ട് വിനിയോഗിച്ച് മണ്ഡലത്തിലെ വികസനപരിപാടികളിൽ താൻ എല്ലാവരെയും പങ്കെടുപ്പിക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കി

പ്രവർത്തകനുമായ ഡോക്ടർ ഫിലിപ്പ് പൌലോസ് തൃശൂർ കുണ്ടുകാട് വീട്ടിൽ നിര്യാതനായി